നാളെ ആരംഭിക്കുന്ന ഉച്ചകോടിയിൽ സൌദി അറേബൃ അദ്ധ്യക്ഷത വഹിക്കും

സൌദി രാജാവിന്റെ ക്ഷണമനുസരിച്ചാണ് നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വെർച്ചൽ ഉച്ചകോടിയിൽ ശ്രീ മോദി പങ്കെടുക്കുന്നത്

ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ അവസരങ്ങൾ എല്ലാവർക്കുമായി സാക്ഷാൽക്കരിക്കുക എന്നതാണ് സൌദി അറേബ്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം

കഴിഞ്ഞവർഷം ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനത്തിനിടെ പ്ദ്ധതിയുടെ ആദൃഘട്ടത്തിന് ഇരു പ്രധാനമന്ത്രിമാരും തുടക്കമിട്ടിരുന്നു റൂപേ കാർഡിന്റെ ഘട്ടം ഒന്ന് ഭൂട്ടാനിൽ നടപ്പിലാക്കിയതോടെ ഇന്ത്യക്കാരായ സന്ദർശകർക്ക് ഭൂട്ടാനിൽ എടിഎം വാണിജ്യ സേവനങ്ങൾ തുടങ്ങിയവ ഉപയോഗപ്പെടുത്താനായിട്ടുണ്ടെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു

ലക്സംബർഗ് ഉച്ചകോടിയിൽ ഇന്ത്യ വീഡിയോ കോൺഫെറെൻസിങ്ങിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി ആമിന നജുമ

ഇന്ത്യയും ഘക്സംബർഗും തമ്മിലുള്ള സാമ്പത്തിക കൈമാറ്റം വർദ്ധിപ്പിക്കുന്നതീൽ ഒട്ടേറെ സാധ്യതകളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു ഉരുക്ക് സാമ്പത്തിക സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച സഹകരണമാണെന്നും ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു സാമ്പത്തികമേഖലയിൽ വളർന്നുവരുന്ന ഉഭയകക്ഷിബന്ധം വികസിപ്പിക്കാനുള്ള സാധൃതകളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ നിയമ വാഴ്ചയും സ്വതന്ത്ര സമീപനവും ഇന്ത്യ ലക്സംബർഗ് സഹകരണത്തിന് ശക്തി പകർന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

ഭീകരവാദത്തിൽ നിന്ന് ആഗോള സമൂഹം നേരിടുന്ന വെല്ലുവിളിയും ഭീകരവാദത്തെ ചെറുക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഉന്നയിച്ചു

നിലവിൽ നാലര ലക്ഷത്തോളം പേരാണ് കോവിഡ് ച്ചികിത്സയിലുള്ളത്

ബ്രസീൽ ഇറ്റലി റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുകയാണ്

നൊബേൽ സമ്മാനം കഴിഞ്ഞാൽ ഒരു സാഹിതൃകൃതിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് മാൻ ബുക്കർ പ്രൈസ്

ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റവും വാഹനമിടിച്ചു കയറ്റിയുള്ള ആക്രമണങ്ങളും അടക്കം പാകിസ്താൻ നിർബാധം തുടരുകയാണെന്നും വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു നിയന്ത്രണരേഖ കടന്നുള്ള ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ പാക് സേനയുടെ സഹായമില്ലാതെ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അറിയിച്ചു

കേന്ദ്ര സായുധ പോലീസ് സേനയിലെ ഡോക്ടർമാരുടെയും ആരോഗ്യപ്രവർത്തകരുടെയും സേവനം ഇവിടെ ഉപയോഗപ്പെടുത്തും

ഡൽഹിയിലും സമീപപ്രദേശങ്ങളായ ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളില്ചും പ്രതിദിന കോവിഡ് കേസുകൾ വർധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം

കോവിഡ് പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിക്കുന്നതുൾപ്പെടെ പ്രത്യേക ക്രമീകരണങ്ങളാണ് പരിശോധനാ ഹാളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്

സ്ഥാനാർഥികളുടെ പ്രചരണചിത്രങ്ങളും സ്വകാര്യചിത്രങ്ങളും എഡിറ്റ് ചെയ്തും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചും സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽ പെട്ടതിനെത്തുടർന്നാണ് ഈ നിർദ്ദേശം ഇത്തരം സംഭവങ്ങളിൽ സ്വീകരിക്കുന്ന നടപടികൾ ഉടൻ തന്നെ പോലീസ് ആസ്ഥാനത്തെ ഇലക്ഷൻ സെല്ലിൽ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്

ബാലൻ വിവിധ ചലച്ചിത്ര സംഘ്ടന് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

കുട്ടികൾക്കായി മെച്ചപ്പെട്ട ലോകം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ് ഈ ദിനം നമുക്ക് നൽകുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ വർഷത്തെ ലോകശിശുദിന പ്രമേയം

ഓസ്ട്രിയയുടെ ഡൊമിനിക് തീമിനെയാണ് റൂബലവ് സെമിഫൈനലിൽ പരാജയപ്പെടുത്തിയത്